ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം

പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോപ്പു ലർ ഫ്രണ്ടിന്റെ പങ്ക് തെളിഞ്ഞു വരുന്നതായി കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു നിരോധിത സംഘടനയായ സിമിയുമായി ബന്ധമുണ്ടെന്നതുൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒട്ടേറെ ആരോപണ ങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തെളി വുകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ തിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും രവിശങ്കർ പ്രസാദ് വൃക്ത മാക്കി പാർലമെന്റ് പാസ്സാക്കിയ നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി ചുമതലയുണ്ടെന്നും നിയമ മന്ത്രി അറിയിച്ചു പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കുന്നവർ നിയമ വിദഗ്ദ്ധ രുടെ അഭിപ്രായം കൂടി തേടണമെന്ന് അദ്ദേഹം പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചിയിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ റാലി നടത്തി കൊച്ചി മറൈൻ ഡ്രൈവ് മൈതാനിയിൽ ചേർന്ന സമര പ്രഖ്യാപന സമ്മേളനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്തിം സംഘടനകളുടെ കോ ഓർഡിനേഷൻ കമ്മിറ്റിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്

് ് മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സമയപരിധി ഈ മാസം ആറുവരെ നീട്ടി ഏഴു വരെ ഫീ അടയ്ക്കാം ലോക കേരള സഭയ്ക്ക് പ്രവാസികളിൽ വിശ്വാസം ജനിപ്പിക്കാ നായെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു നിതി ആയോ ഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതെത്തിയതിൽ പ്രവാസികളുടെ സംഭാവനകൾ വഹിച്ച പങ്ക് വലുതാണെന്ന് ഗവർണർ പറ ഞ്ഞു ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം തിരുവനന്തപുരം കനക ക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ പ്രവാ സികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനൊപ്പം ഭാവി പ്രവാസത്തിന്റെ ഗുണനി ലവാരം ഉറപ്പാക്കാൻ നടപടികളും ലോക കേരള സഭ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമ പരിരക്ഷ കിട്ടുന്നതോടെ ലോക കേരള സഭയ്ക്ക് കൂടുതൽ ശക്തിയും ഊർജ്ജവും ലഭിക്കുമെന്നും ഭാവി കേരളം എന്താകണമെന്ന കാര്യത്തിൽ പ്രവാസി സമൂഹത്തിന് വൃക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രിമാർ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു

ലോക കേരള സഭ നിയമനിർമ്മാണത്തിന്റെ കരട് ബില്ല് ഇന്ന് അവതരിപ്പിക്കും

കേരള റിയൽ എസ്റ്റേറ്റ് റഗുലേറ്ററി അതോറിറ്റി തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സാമ്പത്തിക നയത്തിന്റെ ഭാഗമായ പ്രശ്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയേയും പ്രതികൂലമായി ബാധി ക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവവത്സര ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായ ഭരണപരാജയം മറച്ചുവെച്ച് ജനങ്ങളെ കബ ളിപ്പിക്കുന്നതിനുള്ള പൊടിക്കൈ മാത്രമാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി പൊതു ഇടങ്ങൾ സ്ത്രീ സൌഹൃദമാക്കും സ്ത്രീകൾക്കായി വിശ്രമകേന്ദ്രങ്ങളും സ്ത്രീ സൌഹൃദ ശുചിമുറികളും സ്ഥാപിക്കും വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും തുടങ്ങിയ പ്രഖ്യാ പനങ്ങൾ കഴിഞ്ഞ ബജറ്റുകളിലും ഗവൺമെന്റ് നടത്തിയതാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു

ആന്ധ്രപ്രദേശ് കർണാടക തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേ ശ് ഗുജറാത്ത് ഗോവ ഹരിയാന രാജസ്ഥാൻ ഝാർഖണ്ഡ് ത്രിപുര സംസ്ഥാനങ്ങളെ ഒരു ക്ലസ്റ്ററാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

വൈ മുൻഗ ണന കാർഡുടമകൾക്ക് ഏത് സംസ്ഥാനത്തുനിന്നും റേഷൻ വാങ്ങാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ വന്നു താമസിക്കു ന്നവർക്കും തൊഴിലിനായി ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മല യാളികൾക്കും എ

വൈ മുൻഗണനാ വിഭാഗം കാർഡുകളാണെങ്കിൽ റേഷൻ കാർഡ് മാറ്റാതെ തന്നെ ധാന്യവിഹിതം കൈപ്പറ്റാൻ സാധിക്കുമെ ന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത

ന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നടക്കും മന്നം ജയന്തി സമ്മേ ളനം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം രാവിലെ ഉദ്ഘാടനം ചെയ്യും

മതപരമായ ആചാരങ്ങളെക്കാൾ മാനവികതയ്ക്ക് പ്രാധാന്യം നൽകിയ ഗുരുവിന്റെ ദർശനങ്ങളാണ് ന പുരോഗമന മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകർന്നതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി എംഎം മണി അധ്യക്ഷനായിരുന്നു ് ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിവിധ വകുപ്പുകൾ മുഖേന അനു വദിക്കുന്ന തുക പൂർണമായും ചെലവഴിക്കണമെന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ വൈസ് ചെയർമാൻ എൽ

കൊല്ലത്ത് ഉദ്യോഗ സ്ഥതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ പട്ടിക ജാതി പീഡന കേസുകളിൽ അതിവേഗ നട പടി സ്വീകരിക്കാൻ പൊലീസ് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി

പ്പിന്റെ വനിതാ വിഭാഗം ഫൈനലിൽ കേരളം ഇന്ന് റെയിൽവെയെ നേരി ടും ഇന്നലെ സെമിയിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് മഹാരാഷ്ട്രയെ പരാജ യപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചത് പുരുഷവിഭാഗം സെമിയിൽ റെയിൽവെ കേരളത്തെ എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് പരാ ജയപ്പെടുത്തി ഫൈനലിൽ തമിഴ്നാടാണ് റെയിൽവെയുടെ എതിരാളി ലൂസേഴ്സ് ഫൈനലിൽ കേരളം ഇന്ന് കർണാടകയെ നേരിടും ദേശീയ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റിന് ഇന്ന് മംഗ ലുരു മൂഡബിദ്രിയിൽ തുടക്കമാകും ആദ്യദിനമായ ഇന്ന് പുരുഷ വനിതാ വിഭാഗം പതിനായിരം മീറ്റർ ഫൈനലുകൾ നടക്കും

തിങ്ക ളാഴ്ച സമാപിക്കും യുവതാരം മഞ്ചോത് കൽറയെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെന്റ് ചെയ്തു

് ഒളിമ്പിക്സിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പ്രവർത്ത നങ്ങളാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന തെന്ന് മന്ത്രി ഇ

ഈ വർഷത്തെ ഖേലോ ഇന്ത്യ വിജയികൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും തിരുവനന്തപുരത്ത് വിത രണം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഫസൽ എന്നിവർക്കെതിരായിയു എ പി എ കേസ് എൻ ഐ എ ഏറ്റെടു ത്തത് നിയമ പ്രകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവന ന്തപുരത്ത് പറഞ്ഞു അറസ്റ്റിലായവർ നിരപരാധികളല്ലെന്നും മാവോയി സ്റ്റുകളുമായി ബന്ധമുള്ളവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസ് എൻ ഐ എ ഏറ്റെടുത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ബാധ്യതയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സംസ്ഥാനതല ഉദ്ഘാ ടനം തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും സഹകരണമേഖലയെ കൂടുതൽ സുശക്തമാക്കുന്നതിനും ആധുനീകരിക്കു ന്നതിനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് കേരള ബാങ്ക് രൂപീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ആദ്യഗോത്ര വർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടി സന്ദർശിച്ചു ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ് നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുവേണ്ടിയായിരുന്നു സന്ദർശനം ഇടമലക്കുടിയിൽ ഇനിയും ഒട്ടനവധി വികസനം എത്താനുണ്ടെന്നും പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇടമലക്കുടിയിലേയ്ക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു

പരോക്ഷ നികുതി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് ചെയർമാനായി മലയാളിയായ ഡോക്ടർ ജോൺ ജോസഫിനെ നിയമിച്ചു

ധനകാര്യ മന്ത്രാലയ ത്തിൽ ടാക്സ് പോളിസി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്

തൊടുപുഴയിൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷി കമേളയോടനുബന്ധിച്ച് നടത്തിയ റബർ പ്രതിസന്ധിയും പരിഹാരമാർഗ്ഗ ങ്ങളും സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ് ഡോക്ടർ ആർ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു

കാഴ്ച പരിമിതർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് റിസർവ് ബാങ്ക് മൊബൈൽ ആപ്പ് പുറത്തിറക്കി ആൻഡ്രോയ്ഡ് ഐ ഒ എസ് ഫോണുകളിൽ ആപ്പ് ലഭ്യമാകും

എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ

ജേക്കബ് രാജിവെച്ചു

ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആരോഗൃമുള്ളവരായി രുന്നാൽ മാത്രമേ സമൂഹത്തിന് കൃത്യമായി സേവനം ചെയ്യാൻ സാധിക്കൂ എന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു